റായ്ബറേലിയിലെ കോച്ച് ഫാക്ടറി താമസിയാതെ ആഗോള ഹബ്ബായി മാറുമെന്ന് നരേന്ദ്രമോദി

സത്യപ്രതിജ്ഞ നാളെ

ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസ് കിരീടം ഇന്ത്യയുടെ പി

സിന്ധുവിന്

കൂടുതൽ വിവരങ്ങളുമായി അരുൺ കെ

റായ്ബ്രേലിയിലെ റയിൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച കോച്ചുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു കോച്ചു ഫാക്ടറി പൂർണ തോതിൽ നിർമ്മാണം ആരംഭിച്ചിട്ടി ല്ലെന്ന് ലാൽഗബിലെ പൊതുപരിപാടിയിൽ സംസാരിക്കവെ ശ്രീ

എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം സ്ഥിതി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ വർഷം മൂവായിരം കോച്ചുകൾ നിർമ്മിക്ക്ടൂൻ കഴിയും എന്നാൽ വാർഷിക ഉൽപാദനം അയ്യായിരം ൃത്ത്ക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു് റാഫേൽ ഇടപാടുമായി ബിഡ്ഡപ്പെട്ട് കോൺഗ്രസ് കള്ളം പ്രചരിപ്പിക്കുകയാണ്

ഡൽഹിക്ക് മടങ്ങുന്നതിന് മുമ്പ് ബാമ്റൌലി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവ്വഹിക്കും

പ്രസിഡന്റ് മൈത്രിപാല സിരിസേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു

മഹേന്ദ്ര രാജപക്സെ പ്രധാനമന്ത്രി

എന്നാൽ സുപ്രീംകോടതി വിധിയെ തുടർന്ന് മഹേന്ദ്ര രാജപക്സെ രാജിവെയ്ക്കുകയായിരുന്നു ഇത് അഞ്ചാം തവണയാണ് റിനിൽ വിക്രമസിങ്കെ പ്രധാനമന്ത്രിയാകുന്നത് കാബിനെറ്റ് മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും

ഇന്ത്യ ശ്രീലങ്ക ബന്ധം പൂർവ്വാധികം ശക്തിയോടെ മുന്നോട്ട് പോകുമെന്ന് വിദേശകാരൃ വക്താവ് രവീഷ് കുമാർ പ്രത്യാശ പ്രകടിപ്പിച്ചു

ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശിന്റെയും യമന്റെയും തീരുങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്സ്റ്റ് നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

റായ്പൂരിൽ ഇന്ന് ചേർന്ന കോൺഗ്രസ്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ എ ഐ സി സി നിരീക്ഷകൻ മല്ലികാർജ്ജുന ഖാർഗേയാണ് മുഖ്യമന്ത്രിയായി ഭൂപേഷ് ബഖേലിന്റെ പേരു പ്രഖ്യാപിച്ചത് റായ്പൂരിലെ സയൻസ് കോളേജ് മൈതാനത്ത് നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ബാഖേൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഗവർണർ ആനന്ദീബെൻ പടേൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കും

കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി ഹർദ്ദീപ് സിംഗ് പൂരി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഉഭയകക്ഷി ചർച്ചകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ശ്രീ

ദ് ദ്വീപിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സഹകരണത്തോടു കൂടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മാൽദ്വീപ്സ് പ്രവാസി സമൂഹത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യൻ വംശജർക്കുള്ളത്

റോഡ് സുരക്ഷയെക്കുറിച്ചും ഉത്തരവാദിത്ത്തോടെ വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനുവേണ്ടിയാണ് റാലി സംഘടിപ്പിക്കുന്നത് നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങളും മുൻ അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു

ജെ

യാതൊരുതര്യത്തിലു്ള അഴിമതിയും ഇല്ലാത്ത ഒരു ്ഗവൺമെന്റാണ് രാജ്യം ഭീരിക്കുന്നതെന്നും ഇടപാടുകളിൽ മധ്യവർത്തികൾക്ക് യാത്തൊർു സ്ഥാനവുമില്ലെന്നും ശ്രീ

പാരമ്പര്യമാണ് രാഹുൽഗാന്ധിക്ക് ഉള്ളതെന്നും ശ്രീ

റാഫേൽ ബൊഫേഴ്സ് ഇടപാടുകൾ ഒരുവിധത്തിലും താരതമ്യപ്പെടുത്താനാവില്ല റാഫേൽ ഇടപാടിൽ ഒട്ടാവിയോ ഖൊത്ത്റോച്ചിയെപോലെയുള്ള മധ്യവർത്തികൾക്ക് യാതൊരു സ്ഥാനവുമില്ല റാഫേൽ ഇടപാടിനെ കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളും കള്ളമാ ണെന്നും ശ്രീ

ഇതുസംബന്ധിച്ച് സുപ്രീം കോടതിവിധി വരുമ്പോൾ എല്ലാ ചർച്ചകൾക്കും ആരോപണ ങ്ങൾക്കും അറുതി ആകുമെന്നും ശ്രീ ജയ്റ്റ്ലി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

യുദ്ധത്തിൽ വീരചരമം വരിച്ച ധീരജവാന്മാരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുസ്മരിച്ചു

വടക്കു കിഴക്കൻ മേഖലയിലെ നിയമ പരിപാലന സംവിധാനം ശക്തിപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ വിജയ് ദിവസ് പരിപാടിയിൽ സംസാരിക്കുകയാ യിരുന്നു ആഭ്യന്തരമന്ത്രി

ഇന്ത്യൻ സൈന്യവും അർദ്ധസൈനിക വിഭാഗ്രങ്ങ്ങളുമായുള്ള ഏകോപനം മൂലമാണ് ഇത് ന്റ്റ്ല്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഗ്രാമത്തിലെ നിരാണി ഷുഗർ ലിമിറ്റഡിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് സുരക്ഷാ വാൽവിൽ ഉണ്ടായ തടസ്സംമൂലമാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം മുഖൃമന്ത്രി എച്ച്

അയൽ ജില്ലകളിൽ നിന്നുള്ള ആംബുലൻസുകൾ അപകട സ്ഥലത്ത് എത്തിച്ചേരാനും അദ്ദേഹം നിർദ്ദേശം നൽകി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുവാനും മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി

അനധികൃത കൽക്കരി ഖനിയിലാണ് അപകടം ഉണ്ടായത്

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്റസ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തക ളുടെ അടിസ്ഥാനത്തിലുള്ള അറിവ് മാത്രമാണ് തനിക്കുള്ള തെന്നും അദ്ദേഹം ദോഹയിൽ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു

കൃഷ്ണയ്യർ അവാർഡ് ശ്രീ

തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ റിട്ട ജസ്റ്റിസ് പി

ചടങ്ങിൽ ലോ ട്രസ്റ്റ് ചെയർമാൻ അഡ്വ

സന്തോഷ്കുമാർ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു

സിന്ധുവിന് കിരീടം ഫൈനലിൽ രണ്ടാം സീഡ് ജപ്പാൻ താരം നവോമി ഒക്ഹാരെയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധു കിരീടം സ്വന്തമാക്കിയത്

ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സിന്ധു

ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ലോക ചാമ്പ്യൻഷിപ്പ് എന്നീ മത്സരങ്ങളിൽ സിന്ധു വെള്ളി മെഡൽ നേടിയിരുന്നു